കേരളത്തിന്റെ വികസനത്തിന് എൻ

എയ്ക്ക് വൃക്തമായ പദ്ധതിയുണ്ടെന്ന് പാലക്കാട്ട് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അസ്സമിലും പശ്ചിമബ്രഹാളിലും രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ ന് പരസ്യ പ്രചാരണം അഖ്സാനിച്ചു വോട്ടെടുപ്പ് മറ്റന്നാൾ

സ്വീകരിച്ചു വാക്സിനേഷൻ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ജനങ്ങൾ മുന്നോട്ടുവരണമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർധൻ

എഴുത്തുകാരൻ ശരൺകുമാർ ലിംബാളെയ്ക്ക്

വിവിധ കക്ഷികളിലെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്

കേരളത്തിന്റെ വികസനത്തിന് എൻ ഡി എയ്ക്ക് വൃക്തമായ പദ്ധതികളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പൊതു യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

അധികാരത്തിൽ എത്തിയാൽ കേരളത്തിനുവേണ്ടിയുള്ള വികസന പദ്ധതി കൃതൃമായി നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി വൃക്തമാക്കി

മത്സ്യബന്ധനം കൃഷി ആയുർവേദം നൈപുണ്യവികസനം സാമൂഹ്യ നീതി വിനോദസഞ്ചാരം സാങ്കേതിക വിദ്യ തുടങ്ങിയ മ്പ്ലകൾക്ക് പ്രാമുഖ്യം നൽകിയുള്ളതാണ് അതിവേഗ വിക്സ്ന്റ്രി ് പദ്ധതി കേരളത്തിന്റെ വികസന പാതയിൽ ഇരു മുന്നണിക്ളും സൃഷ്ടിച്ച തടസ്സങ്ങൾ മാറ്റാൻ കേരളത്തിലെ യുവവോട്ടൂർമാർ ് തയ്യാറാകണം അഴിമതിയും സ്വജന പക്ഷപാതവുമാണ് ക്കേരളത്തിൽ നിലനിൽക്കുന്നത് ഇൌ സ്ഥിതി മാറണം

നിരന്തരം ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആശങ്കാജനകമാണ് മെട്രോമാൻ ഇ

എം കെ നേതാവും മുഖൃമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമി ഉപമുഖൃമന്ത്രി ഒ

ഡി എ സഖ്യകക്ഷികളായ പി എം കെ തമിഴ് മാനില കോൺഗ്രസ് എന്നീ കക്ഷികളുടെ നേതാക്കളും റാലിയിൽ പങ്കെടുത്തു

കെയ്ക്കുവേണ്ടി പാർട്ടി പ്രസിഡന്റ് എം

സ്റ്റാലിൻ സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരും സജീവ പ്രചാരണത്തിലാണ്

കോവിഡ് മഹാമാരിയും സാമ്പത്തിക തകർച്ചയും രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് കാസർഗോട്ട് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചു ചാട്ടമാണ് നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എ ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയ്ക്കാഗാന്ധി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലെ പ്രചാരണ യോഗ്ങ്ങളിൽ സംബന്ധിച്ചു തിരുവന്തപുരം കൊല്ലം ആലപ്പുഴ എ്ന്നീ ജില്ലകളിൽ നിരവധി പ്രചാരണ പരിപാടികളിൽ അവർ പർങ്ക്ടുത്തു ജനങ്ങൾ നൽകുന്ന നികുതിപ്പണത്തിന്റെ പ്രയോജന് ജനങ്ങൾക്ക് തന്നെ ലഭൃമാകണം എന്നതാണ് കോൺഗ്രസ്സ് നയം കേരളം ആരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി കൊല്ലത്ത് ് പറഞ്ഞു ആലപ്പുഴയിൽ നടന്ന റോഡ് ഷോയിലും ശ്രീമതി പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു

കേന്ദ്രമന്ത്രി അമിത് ്ഷാ ഇന്ന് നന്ദിഗ്രാം ഉൾപ്പെടെ മൂന്നിടത്ത് റോഡ്ഷോയിൽ പങ്കെടുത്തു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും നന്ദിഗ്രാം മണ്ഡലത്തിൽ പ്രചാരണം തുടരുന്നു

ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

അസ്സമിലെ ബിലാസിപ്പാറയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നുട് അദ്ദേഹം

വികസനത്തുടർച്ചയ്ക്ക്വേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് അസ്സമിലെ ജനങ്ങളോട് ശ്രീ

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ആശുപത്രി അധികൃതരുമായി രാഷ്ട്രപതിയുടെ ആരോഗ്യം സംബന്ധിച്ച് സംസാരിക്കുകയും ശസ്ത്രക്രിയ വിജയകരമായതിൽ അനുമോദനമറിയിക്കുയും ചെയ്തു

ഐ

രോഗവ്യാപനത്തിന്റെ നിരീക്ഷണം യഥാസമയം നടത്താൻ ഉപകരിക്കുന്ന നിർദ്ദേശങ്ങളാണ് സി

സർക്കാരുമായും ലോക്സഭാ സ്പീക്കറുമായും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി സി എസ് ഐ ആർ പ്രതിനിധിസംഘത്തിന് ഉറപ്പുനൽകി

ഹർഷ് വർദ്ധൻ ഡൽഹിയിൽ വാക്സിന്റെ രണ്ടാം ഡോസ് സ്വീകരിച്ചശേഷ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു റിപ്പോർട്ട് കോവിഡ് വാക്സിൻ സ്പ്രീക്രിക്കാൻ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ടു വരണമെന്ന് ഡേ

വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണ്

ഇത് വാക്സിനേഷന്റെ പോരായ്മയല്ലെന്ന് ഡോ

കോവിഡ് രോഗ മുക്തി നിരക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

എന്നാൽ കോവിഡ് മാർഗ്ഗരേഖ കൃത്യമായി പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും ശ്രീ

്പരിശോധനകളിൽ രാജ്യത്തെ ചില വിമാനത്താവളങ്ങളിലെ കോവിഡ് നിരീക്ഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതായി പുതുതായി പുറപ്പെടുവിച്ച മാർഗ്ഗരേഖയിൽ ചൂണ്ടിക്കാട്ടി മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ ക്ലോവിഡ് മാർഗ്ഗരേഖയും കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്ക്ണമെന്ന് വിമാനത്താവള ഓപ്പറേറ്റർമാരോട് ഡയറക്ട്രേറ്റ് ജനറൽ ആവശ്യപ്പെട്ടു

ശരൺകുമാർ ലിംബാളെയ്ക്ക്

രാജ്യത്തെ ഏറ്റവും മികച്ച സാഹിത്യ പുരസ്കാരമാണ് കെ

ബിർള ഫൌണ്ടേഷൻ നൽകുന്ന സരസ്വതി സമ്മാൻ സ്വാതന്ത്രൃ സമരത്തിന് രാജ്യത്തെ ഗിരിവർഗ്ഗ പിന്നോക്ക വിഭാഗങ്ങൾ നൽകിയ സംഭാവനകളെ ആസ്പദമാക്കിയ രചനയാണ് സനാതൻ

വിപണികളിലും ഓൺലൈനായും പുസ്തകം ലഭ്യമാക്കിയിട്ടുണ്ട്

വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ് അധ്യാപകർ എന്നിവരിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങൾ കൂടി പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു പരീക്ഷക്കാലത്തെ പിരിമുറുക്കം ഒഴിവാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് പുസ്തകത്തിലുള്ളത്